ഭീകരതക്കെതിരെ ലോകം ഒറ്റക്കെട്ടായി പോരാടണമെന്ന് ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പ്രധാനമന്ത്രി ആവശ്യ പ്പെട്ടു വികസനത്തിന്റെ രാഷ്ട്രീയം സ്വീകരിക്കാൻ കേരള ജനത തയാറാകണമെന്ന് ക്യേന്ദ്രസഹമന്ത്രി അനുരാഗ് ഠാക്കൂർ സംസ്ഥാനത്തെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും പിറവം സെന്റ് മേരീസ് പള്ളിയിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് നാളെ കുർബാന നടത്താൻ ഹൈക്കോ ടതിയുടെ അനുമതി

പി ജാബിർ സെമിയിലെത്തി ഇടുക്കി മുരിക്കാശേരിയിൽ ദേശീയ ക്ലാസിക് പവർലി ഫ്റ്റിങ് ചാമ്പ്യൻഷിപ്പിൽ രണ്ടിനങ്ങളിൽ കേരളം മുന്നേ റുന്നു ള അ അ ഒരാഴ്ചത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ശേഷം പ്രധാന മന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് മടങ്ങി വ്യോമസേന യുടെ പ്രത്യേക വിമാനത്തിലാണ് അദ്ദേഹം ന്യൂയോർക്കിൽ നിന്ന് മടങ്ങിയത് അമേരിക്കയിലെ ഹൌഡി മോദി പരിപാടി ഐകൃരാഷ്ട്ര സഭ പൊതുസ ഭയിലെ പ്രസംഗം വ്യാപാര പ്രമുഖരുമായി ഹൂസ്റ്റണിൽ നടത്തിയ കൂടിക്കാഴ്ച ഭീകരതക്കെതിരായ ശക്തമായ ഇന്ത്യൻ നിലപാട് കാലാവസ്ഥാ വ്യതിയാനം സംബ ന്ധിച്ചു ഇന്ത്യ യുടെ കാഴ്ചപ്പാട്ട് പാരമ്പര്യേതര ഊർജ്ജോത്പാദനം വർധിപ്പിക്കുമെന്ന് പ്രഖ്യാപനം തുട ങ്ങിയ കാര്യങ്ങൾ പര്യടന് കാലത്തെ സവിശേഷതക ളായി പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരതക്കെതിരെ ലോകം ഒറ്റ ക്കെട്ടായി പോരാടണമെന്ന് ആഹ്വാനം ചെയ്തു ബുദ്ധന് ജന്മം നൽകിയ രാജ്യമാണ് ഇന്ത്യയെന്നും ലോക ശാന്തിക്ക് വേണ്ടിയാണ് ഇന്തൃ നിലകൊള്ളുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഭീകരതയാണ് ആഗോളതലത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയെന്നും അത് തകർക്കേണ്ടത് ലോകത്തിന്റെ തന്നെ അനിവാര്യതയാ ണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വികസനത്തിന്റെ രാഷ്ട്രീയം സ്വീകരിക്കാൻ കേരള ജനത തയാറാകണമെന്ന് കേന്ദ്രധനകാര്യ സഹമന്ത്രി അനുരാഗ് ഠാക്കൂർ ആലപ്പുഴയിൽ പറഞ്ഞു

ജെ

ജനങ്ങളുടെ ഒരു രൂപ പോലും ചെലവഴിക്കുമ്പോൾ അത് ഓഡിറ്റിങ്ങിന് വിധേയമാക്കണമെന്ന് അനുരാഗ് ഠാക്കൂർ മറ്റൊരു ചടങ്ങിൽ പറഞ്ഞു കിഫ്ബി സുതാര്യമാണെ ങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് സി

ജി ഓഡിറ്റിന് മടി ക്കുന്നത് എന്തിനാണെന്ന് അദ്ദേഹം ചോദിച്ചു

എസ് ഖണ്ടേരി ഇന്ന് മുംബൈയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ്സിങ് കമ്മീഷൻ ചെയ്യും

എസ് നീല ഗിരി യുദ്ധക്കപ്പലും അദ്ദേഹം നാവിക സേനയിൽ ഉൾപ്പെ ടുത്തും പുതിയ കപ്പലുകൾകൂടി ഉൾപ്പെടുത്തുന്നതോടെ സേനയുടെ ശേഷി പലമടങ്ങ് വർധിക്കുമെന്ന് നാവിക സേനാ ഉപമേധാവി വൈസ് അഡ്മിറൽ ജി അശോക് കുമാർ അറിയിച്ചു

എന്നാൽ ഇത്തവണ കാലവർഷത്തിന്റെ സമാ പന ലക്ഷണങ്ങൾ വ്യക്തമായിട്ടില്ലെന്ന് കാലവസ്ഥാ വകുപ്പ് ഡയറക്ടർ ജനറൽ മൃത്യുഞ്ജയ് മഹാപത്ര അറി യിച്ചു വയനാട് ദേശീയപാതയിലെ രാത്രിയാത്രാ നിരോധന വിഷ യത്തിൽ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കറെ കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും വയനാട്ടിലെ സർവ്വ കക്ഷി സംഘവും ഒക്ടോബർ ഒന്നിന് ഡൽഹിയിലേക്ക് പോകും യാത്രാവിലക്ക് മറികടുക്കാൻ മേൽപാത നിർമി ക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കഴിഞ്ഞ ദിവസം പ്രകാശ് ജാവ്ദേക്കർ നിരസിച്ചിരുന്നു ഇതുമായി ബന്ധ പ്പെട്ട് തീരുമാനം അനുകൂലമല്ലെങ്കിൽ ഹർത്താലടക്കം ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തുമെന്ന് സമരസമിതി അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് അഞ്ച് മണ്ഡലങ്ങളിലെ നിയമസഭാ ഉപതെ രഞ്ഞെടുപ്പിൽ നാല് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും നാല് സീറ്റുകളിലേക്കും ഓരോ സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇന്നലെ സംസ്ഥാന ഘടകം ഹൈക്കമാൻഡിന് കൈമാറി അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ എറണാകുളത്ത് ടി ജെ വിനോദ് കോന്നിയിൽ പി മോഹൻരാജ് വട്ടിയൂർക്കാവിൽ കെ മോഹൻകുമാർ എന്നിവരെയാണ് കെ

സി സി നിർദേശിച്ചത്

ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഓരോ മണ്ഡലത്തി ലേക്കും മൂന്ന് വീതം സ്ഥാനാർത്ഥികളുടെ പട്ടിക കൈന്ദ്ര ത്തിന് കൈമാറിയിട്ടുണ്ട് പട്ടികയിൽ അന്തിമ തീരുമാന മെടുത്ത ശേഷം ബി ജെ പി പാർലമെന്ററി ബോർഡ് ഡൽഹിയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും ടൂറിസം പഠനത്തിലെ ആഗോള പ്രവണതകൾ സംബന്ധിച്ച് തിരുവനന്തപുരം കിറ്റ്സിൽ സംഘടിപ്പിക്കുന്ന രണ്ടു ദിവ സത്തെ രാജ്യാന്തര സമ്മേളനം ഗ്വർണർ ആരിഫ് മുഹ മ്മദ് ഖാൻ രാവിലെ ഉദ്ഘാടനം ചെയ്യും ടൂറിസം മേഖ ലകളിലെ വിദഗ്ദരും സ്ഥാപന മേധാവികളും സമ്മേളന ത്തിൽ പങ്കെടുക്കും നാളെ വൈകീട്ട് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പിറവം സെന്റ് മേരീസ് പള്ളിയിൽ ഓർത്തഡോക്സ് വിഭാ ഗത്തിന് നാളെ കുർബാന നടത്താൻ ഹൈക്കോടതി അനുമതി നൽകി പള്ളിയിലെ ആരാധന തടസ്സപ്പെടു ത്താൻ ശ്രമിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അട യ്ക്കണമെന്ന് ഡിവിഷൻ ബെഞ്ച് പൊലീസിന് നിർദേശം നൽകി ഓർത്തഡോക്സുകാർക്കും മറ്റു വിശ്വാസി കൾക്കും കുർബാനയിൽ പങ്കെടുക്കാമെന്ന് കോടതി വൃക്തമാക്കി പള്ളിയുടെ നിയന്ത്രണം ജില്ലാ കലക്ടർക്ക് തന്നെയായിരിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദേ ശിച്ചു

ശക്തമായി മഴ തുടരുന്ന സാഹചരൃത്തിൽ ദുരിതമനുഭവിക്കുന്ന വർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ലഭ്യമാക്കാൻ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദേശം നൽകി പൂനെ ലക്നൌ അമേഠി ഹർദോയ് പ്രദേശങ്ങ ളിലാണ് കനത്ത നാശനഷ്ടങ്ങളുണ്ടായത്

പി ജാബിർ സെമി ഫൈനലിലെത്തി ഹീറ്റ്സിൽ ഒന്നാമനായി ഫിനിഷ് ചെയ്താണ് ജാബിർ സെമി ബർത്ത് നേടിയത് അതേസമയം ലോങ്ജംപ് യോഗൃതാ റൌണ്ടിൽ മലയാളി താരം എം

പനീർശെൽവം മൂന്ന് ദേശീയ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചു

വനിതാ ജൂനി യർ വിഭാഗത്തിലും കേരളമാണ് മുന്നിൽ

പുരുഷ വനിതാ വിഭാഗങ്ങളിലായി കേരളം മൂന്ന് സ്വർണ്ണ വും രണ്ട് വെള്ളിയും ഒരു വെങ്കലവും കരസ്ഥമാക്കി

തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ സമാപിച്ച ഫെഡറേഷൻ കപ്പ് ജൂനിയർ അത്ലറ്റിക്സിൽ കേരളം മൂന്നാം സ്ഥാന ത്തെത്തി ഹരിയാനയാണ് ഓവറോൾ ചാമ്പ്യൻമാർ തമി ഴ്നാട് രണ്ടാം സ്ഥാനം നേടി കോഴിക്കോട് സമാപിച്ച ആരോഗ്യ സർവകലാശാല ഡി സോൺ ബാസ്കറ്റ് ബോൾ ടൂർണമെന്റിലെ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ കോഴിക്കോട് മെഡി

പുരുഷ വിഭാഗത്തിൽ കണ്ണൂർ അഞ്ചര ക്കണ്ടിയും വനിതാ വിഭാഗത്തിൽ പരിയാരവും രണ്ടാം സ്ഥാനം നേടി വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കാതലായ മാറ്റങ്ങളോടെ പുതിയ നയം നിർദേശിച്ച സാഹചരൃത്തിൽ പുതുതല മുറ ജീവിതത്തെയും പഠനത്തെയും കൂടുതൽ ഗൌരവ ത്തോടെ കാണണമെന്ന് മന്ത്രി ഡോ

കോഴിക്കോട് ഫാറൂഖ് ട്രെയിനിങ് കോളജിലെ കോളജ് യൂനിയൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മൃഗസംരക്ഷണ മേഖലയിൽ ഗുണനിലവാര്യത്തോടെ ഉൽപ ന്നങ്ങൾ ലഭ്യമാക്കണമെന്ന് മന്ത്രി ക്കെ രാജു നിർദേശിച്ചു ഉൽപാദന വർധനയ്ക്കൊപ്പം രോഗപ്രതിരോധവും ഉറപ്പാ ക്കാൻ ഗവൺമെന്റ് ശ്രമിച്ചു വരിക്യാണെന്ന് മന്ത്രി പറഞ്ഞു മൃഗസംരക്ഷണ വകുപ്പിന്റെ മേഖലാ രോഗനിർ ണ്ണയ ലാബ് കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കണ്ണൂർ കാസർകോട് കോഴിക്കോട് വയനാ ട് ജില്ലകൾക്കായി മലബാർ മേഖലയിലെ റഫറൽ ലാബാ ണ് കണ്ണൂരിൽ പ്രവർത്തന സജ്ജമായത്

ഓരോ നിയോജക മണ്ഡല ത്തിലും തെരഞ്ഞെടുത്ത ഒരു സ്കൂളിന്റെ ഭൌതിക വിക സനത്തിന് അഞ്ച് കോടി രൂപ നൽകിയതായും അദ്ദേഹം പറഞ്ഞു പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി വാടാനാംകുറി ശ്ശി അഗളി സ്കൂൾ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു മന്ത്രി

സംസ്ഥാനത്തെ ആയിരത്തോളം വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് ഓഫീസുകളായി മാറിക്കൊണ്ടിരിക്കുകയാ ണെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു

പാലക്കാട് കോങ്ങാട്ട് ജില്ലയിലെ ആദ്യ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സ്വകാരൃ ധനകാരൃ സ്ഥാപനങ്ങൾ കുടുംബശ്രീയിൽ നിന്ന് വായ്പവാങ്ങി തിരിച്ചടയ്ക്കാതെ തട്ടിപ്പ് നടത്തുന്ന കാര്യം ശ്രദ്ധയിൽപെട്ടിട്ടുണ്ടെന്ന് മന്ത്രി എ സി മൊയ്തീൻ തൃശൂരിൽ പറഞ്ഞു ഇത്തരക്കാർക്കെതിരെ കർശന നടപടിയെടുക്കും മുളക്കുന്നത്ത്കാവ് കിലയിൽ സമന്വയം ഏകദിന ശിൽപശാല ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു മന്ത്രി പോഷകാഹാര ലഭൃതയിൽ കേരളം ദേശീയ ശരാശരിയേ ക്കാൾ മുന്നിലാണെന്ന് മന്ത്രി വി

അട്ടപ്പാടി മില്ലറ്റ് ഗ്രാമം പദ്ധതി നടപ്പാക്കിയ ശേഷം ശിശുമരണങ്ങൾ ഉണ്ടായി ട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പോഷൻ അഭിയാൻ പദ്ധ തിയുടെ ഭാഗമായി നാട്ടികയിൽ പോഷൻ എക്സ്പ്രസ് പ്രചാരണ വാഹനത്തിന് ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇടുക്കി കാന്തല്ലൂർ പട്ടിശ്ശേരി ഡാമിന്റെ പുനർ നിർമ്മാണത്തിന് ട്രയൽറൺ ഒരുക്ക്ങ്ങൾ പൂർത്തിയാ യി പഴയ ഡാം പൊളിച്ചുമാറ്റി പുതിയത് നിർമിക്കാൻ ആവശ്യമായ യന്ത്ര സാമഗ്രികളുടെ പ്രവർത്തന ക്ഷമത പരിശോധിക്കാനാണ് ട്രയൽറൺ നടത്തുന്നത് കാന്തല്ലൂർ മേഖലയിലെ കുടിവെള്ളത്തിനും ജലസേചനത്തിനും പട്ടിശ്ശേരി ഡാമിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഇന്ന് ലോക റാബീസ് ദിനം